പ്രഖ്യാപിക്കാത്ത ദുരിതാശ്ചാസ്മ സഹായത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയും സിപിഐഎമ്മും ജനങ്ങളെ വഞ്ചിച്ചതിന് മറു പടി പറയണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പിഎസ് ശ്രീധരൻപിളള ഓർത്തഡോക്സ് സഭൂച്ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തോമസ് മാർ അത്തനാസിയോസ് മെത്രാപ്പോലീത്ത ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു

ഓണക്കാലത്തെ തിരക്ക് ചൂഷണം ചെയ്ത് അമിത നിരക്ക് ഈടാക്കുന്ന അന്തർ സംസ്ഥാന ബസ്സു കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശ്രീന്ദ്രൻ ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് രണ്ട് സ്വർണം

കേരളവും തമിഴ്നാടും സഹ കരിച്ച് മുന്നോട്ട് പോകണമെന്ന് കോടതി പറഞ്ഞു മേൽനോട്ട സമിതിയുടെ നിർദേശം പാലിക്കാനും കോടതി ആവശ്യപ്പെട്ടു

കേരളത്തിന് ആവശ്യമായ ധനസഹായം സംബന്ധിച്ച വിലയി രുത്തലാണ് നടന്നതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ഒരു സ്ഥകാ ര്യചാനലിനോട് പറഞ്ഞു

ഈ കമ്മിറ്റി കേരളത്തിന് എന്തെല്ലാം സഹായങ്ങൾ വേണമെന്ന കാര്യത്തിൽ കൂടിയാലോചന നടത്തുന്നുണ്ട് ഇതല്ലാതെ ഔദ്യോഗികമായി ഒരു തുക കേരളത്തി നായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അംബാസിഡർ വ്യക്തമാക്കി

എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യുഎഇ സഹായധനം വാഗ്ദാനം ചെയ്തതെന്ന് ് വ്യക്തമാക്കണം കേരളം ചോദിച്ചതിനേക്കാൾ കൂടുതൽ ദൂരിതാശ്വാസ സഹായമാണ് കേന്ദ്ര ഗവ

കേരളത്തിനുണ്ടായ ദുരന്തത്തിൽ യുഎഇ ഭരണാധികാരി വേദന പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ മുഖേന സഹായങ്ങൾ നൽകുമെന്നാണ് സന്ദേശത്തിൽ പറഞ്ഞതെന്നും ശ്രീധ രൻപിളള അറിയിച്ചു വിദേശസ്ഹായവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവ നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ലെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറഞ്ഞു

കേരളത്തെ സഹായിക്കാൻ ഒരു രാജ്യം മുന്നോട്ട് വരുമ്പോൾ അത് നിരസിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു പ്രളയക്കെടുതി നേരിടുന്ന സ്ഥല ങ്ങളിലെ ശുചീകരണത്തിൽ എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്ക ണമെന്നും ഇതിനായി കോൺഗ്രസ് പ്രവർത്തകർക്ക് നിർദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സർവ്വകലാശാലകളിലെയും കോളജുകളിലേയും വിഭവശേഷി മന്ത്രാലയത്തിലെ ജീവനക്കാർ ഒരു ദിവസത്തെ ശമ്പളമെങ്കിലും ദൂരി താശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനഃരധിവാസത്തിനും സംഭാ വന നൽകണമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ടിറ്ററിൽ പറ ഞ്ഞു ഒരു മാസത്തെ ശമ്പളം അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി

ഗതാഗതകുരുക്ക് തുടരുന്ന സാഹചര്യത്തിൽ അവശ്യ സർവ്വീ സുകൾക്കായി പാലക്കാട് തൃശൂർ ദേശീയ പാതയിലെ കുതി രാൻ ഇടതു തുരങ്കം തുറന്നു നൽകാൻ തീരുമാന്മായി ആംബു ലൻസ് ദുരിതാശ്ചാസ സാമഗ്രികൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തുടങ്ങിയ അവശ്യ സർവ്വീസുകൾക്കാണ് പൊലീസിന്റെ സുരക്ഷാ മേൽനോട്ടത്തിൽ ഇന്നു മുതൽ തുരങ്കം തുറന്നു നൽകുക

നിശ്ചയിച്ചു നഷ്ടപരിഹാരം നൽകി കഴി ഞ്ഞതായി ജില്ലാകലക്ടർ മീർ ്മുഹമ്മദലി അറിയിച്ചു

കേരളത്തിൽ അണക്കെട്ട് അനുബന്ധ പ്രളയമാണ് ദുരന്തത്തിന് കാരണമായതെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധാപട്കർ പറഞ്ഞു ഇത്തരം ദുർന്തങ്ങൾ ഒഴിവാക്കാൻ ഡാമുകളുടെ സുരക്ഷയ്ക്ക് ഉയർന്ന പരിഗണന നൽകണമെന്ന് അവർ തൃശൂരിൽ വ്യക്തമാ ക്കി ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തോമസ് മാർ അത്തനാസിയോസ് മെത്രാപ്പോലീത്ത ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു

എറണാകുളം സൌത്ത് സ്റ്റേഷനിൽ ഇറങ്ങാനായി വാതിലിനരികിൽ നിൽക്കവെ തെറിച്ച് വീഴുകയായി രുന്നുവെന്നാണ് റിപ്പോർട്ട് മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കു കയാണ് സംസ്കാരം നാളെ വൈകീട്ട് ചെങ്ങന്നൂർ ഓതറ ആശ്രമത്തിൽ നടക്കും അപകടം നടന്ന പുല്ലേപ്പടി റെയിൽവെ ട്രാക്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ലാൽജിയുടെ നേതൃത്വത്തിൽ പൊലീസ് പരിശോ ധന നടത്തി മലയാളികൾ ഇന്ന് തിരുവോണ തലേനാളിലെ ഉത്രാടപാച്ചിൽ എന്നാൽ പ്രളയ ദുരന്തത്തെ തുടർന്ന് പതിവ് ആഘോഷങ്ങളി ല്ലാതെയാണ് ഈ വർഷം ഓണത്തെ വരവേൽക്കിൻ ഒരുങ്ങുന്ന ത് ആർഭാടങ്ങൾ കുറച്ച് ദുരിതാശ്വാസ പ്രിവർത്തനങ്ങൾക്ക് പ്രധാന്യം നൽകിയതിനാൽ ജില്ലാ കേന്ദ്രങ്ങ്ളില്പെ ഓണാഘോഷ പരിപാടികളും ഒഴിവാക്കിയിരുന്നു

പഴം പച്ചക്കറി പൂ പ്രിപ്പണിയും തുണിക്കച്ചവട വും വഴിയോര കച്ചവടങ്ങളും സജ്ജീവമായിട്ടുണ്ട്

അതിരൂക്ഷമായ് പ്രളയക്കെടുതിയെ ഒരുമയിലൂടെ നാം അതിജീവിച്ച് സമയത്താണ് ദേശീയോത്സവമായ ഓണം എത്തിയിരിക്കുന്നതെന്ന് ഗവർണർ പറഞ്ഞു പ്രളയം തട്ടിയെടുത്ത സമൃദ്ധിയുടെയും പുരോഗതിയുടെയും പുനർ സൃഷ്ടിയിലുടനീളം കേരളീയരുടെ മാതൃകാപരമായ ഈ ഒരുമ നിലനിൽക്കുമാറാകട്ടെയെന്നും ഗവർണർ സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു ലോകത്തെങ്ങുമുള്ള മലയാളികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണാശംസ നേർന്നു

സമത്പത്തിന്റെയും സമഭാവനയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകുന്ന ഓണം കഷ്ടപ്പാടുകളെയും പ്രതിസന്ധിക ളെയും അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊ ണ്ടാവട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഓണക്കാലത്തെ തിരക്ക് ചൂഷണം ചെയ്ത് അമിതനിരക്ക് ഈടാക്കുന്ന അന്തർസംസ്ഥാന സർവീസുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു

ജമ്മു കശ്മീരിലെ അനന്ത് നാഗിൽ പുലർച്ചെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഭീകരനെ സുരക്ഷാസേന വധിച്ചു പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവര്ത്തെ തുടർന്ന് തിരച്ചിൽ നടത്തിയ സേനയ്ക്ക് നേരെ ഭീകർ വെടിയുതിർക്കുക യായിരുന്നു പ്രദേശത്ത് മൂന്ന് ഭീക്ര്ർ ഒളിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണമായും വിവിപാറ്റ് മെഷീൻ ഉപയോഗിച്ചുളള തെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്ന് മുഖ്യതെരഞ്ഞെ ടുപ്പ് കമ്മീഷണർ ഒ പി റാവത്ത് ഔംറംഗബാദിൽ പറഞ്ഞു

ബാക്കിയുള്ളത് നവംബ റോടെ ലഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മുതൽ തന്നെ ഒരുക്കങ്ങളാരംഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇല ക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ഒരു ശതമാനത്തിൽ കുറവ് തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ വിവിപാറ്റ് മെഷീനിൽ ഇത് ഉണ്ടാവില്ലെന്നും ഒ പി റാവത്ത് പറഞ്ഞു

ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തവർഷം ഏപ്രിൽ മെയ് മാസ ങ്ങളിലാണ് നടത്തേണ്ടത് അതേസമയം മധ്യപ്രദേശ് ഛത്തീസ്ഗ ഡ് രാജസ്ഥാൻ മിസോറാം എന്നിവിടങ്ങളിലെ നിയമസഭാ തെര ഞ്ഞെടുപ്പുകൾ ഈ വർഷാവസാനം നടക്കേണ്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് രണ്ട് സ്വർണം തുഴച്ചിലിൽ ടീമിനത്തിലും പുരുഷവിഭാഗം ടെന്നീസ് ഡബിൾസി ലുമാണ് സ്വർണം നേടിയത് തുഴച്ചിലിൽ സവാൻസിംഗ് ദത്തു ഭോക്നൽ ഓംപ്രകാശ് സുഖ്മീത് സിംഗ് എന്നീവരടങ്ങിയ ടീമാണ് സ്വർണം കരസ്ഥമാക്കിയത് പുരുഷവിഭാഗും ടെന്നീസ് ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ ദിവിജ് ഷരൺ സ്പ്യത്തിനാണ് സ്വർണം ഇതോടെ ഇന്ത്യയുടെ സ്വർണനേട്ടം ആറായി

വൃക്തി ഗത ഇനത്തിൽ ദുഷ്യന്ത് ചൌഹാനും രോഹിത്കുമാർ ഭഗവാൻ സിംഗ് കൂട്ടുകെട്ടുമാണ് ഉപങ്കല് മെഡലുകൾ നേടിയത് വനിതക ളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് വിഭാഗത്തിൽ ഹീനാ സിദ്ദുവും വെങ്കലം നേടി പിണറായി കൂട്ടക്കൊലക്കേസിലെ പ്രതി വണ്ണത്താംവീട്ടിൽ സൌമ്യയെ ജ്യിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മാതാപിതാക്ക ളെയും മകളെയും വിഷം കൊടുത്ത് കൊന്ന കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് സൌമ്യ രാവിലെ കണ്ണൂർ വനിതാ സബ്ജ യിലിൽ ജീവനൊടുക്കിയത് മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രി യിലേക്ക് മാറ്റി പ്രശസ്ത മനശാസ്ത്രജ്ഞൻ ഡോ

കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയാ യിരുന്നു അന്ത്യം

നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് വരാപ്പുഴ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിരുന്ന എസ് പി എ വി ജോർജിനെ സർവീ സിൽ തിരിച്ചെടുത്തു

ശ്രീജിത്തിന്റെ മരണത്തിൽ ജോർജിന് പങ്കില്ലെന്ന ക്രൈം ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചെടുത്ത് എന്നാൽ ജോർജിനെതിരായ വകുപ്പുതല അന്വേഷണം തുടരും

കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈന്റ് കൊല്ലം ജില്ലാ കമ്മ റ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധി യിലേക്ക് ധനസമാഹരണവും നിർധനരായ കാഴ്ചപരിമിതർക്ക് ഭക്ഷ്യകിറ്റ് വിതരണവും ക്ടപ്പാക്കടയിൽ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർ പ്പേഴ്സൺ ചിന്ത ജറോം ഉദ്ഘാടനം ചെയ്തു കേരളാ യൂണിവേഴ്സിറ്റിയിൽ മലയാളം ബിരുദം ഐച്ഛികവിഷ യമായി പഠിച്ച് ആറാം റാങ്ക് നേടിയ കാഴ്ചപരിമിതയായ എ അ ക്ഷരയെ ചടങ്ങിൽ ആദരിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് എന്ന വ്യാജേന പണപ്പിരിവ് നടത്തിയ മൂന്ന് പേർ കണ്ണൂരിൽ അറസ്റ്റിലായി പെര ളശ്ശേരിയിലെ റിഷബ് കക്കാട്ടെ സഫാൻ ഞാറ്റുവയലിലെ മുഹ മ്മദ് ഇർഫാൻ എന്നിവരാണ് അറസ്റ്റിലായത് നെല്ലിയാമ്പതി ദുരിതാശ്ചാസ കൃാമ്പിലേക്കുള്ള ഭക്ഷ്യസാധ നങ്ങൾ മോഷ്ടിച്ചു ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു